ബന്ധിപ്പിക്കുന്ന വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തുടക്കം കുറിക്കും

പദ്ധതികളുടെ ഉദ്ഘാടന്റ് പ്രെധാനമന്ത്രി നാളെ നിർവഹിക്കും

അധ്യാപകരും രക്ഷകർത്താക്കളും പങ്കെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കേന്ദ്രമന്ത്രി അമിത് ഷാ ആത്മീയാചാര്യന് പ്രണാമമർപ്പിച്ചു

നൽകിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം

നവോമി ഒസാക്ക ഫൈനലിൽ

അസമിലെ ധൂബ്രി ഫുൽബാരി പാലം മജൂലി പാലം തുടങ്ങിയവയുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ നിർവ്വഹിക്കും കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി മൻസൂഖ് മാണ്ഡവൃ ജിതേന്ദ്ര സിങ് അസം മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് കെ സങ്മ എന്നിവർ പങ്കെടുക്കും മഹാബാഹു ബ്രഹ്മപുത്ര പദ്ധതി അസമിന്റെ വികസന വഴിയിൽ സുപ്രധാനമായ ഒരു വഴിത്തിരിവായിരിക്കുമെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു

വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്

തിരവനന്തപുരത്ത് സംയോജിത നിർദ്ദേശ നിയന്ത്രണ കേന്ദ്രത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിടും

അമ്യ ത് ദൌത്യത്തിന് കീഴിൽ നിർമ്മിച്ച ജലസംസ്കരണ പ്താന്റ് തിരുവനന്തപുരത്തെ കൂടിവെള്ള വിതരണ സൌകര്യം മെച്ചപ്പെടുത്തും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടക്കുന്ന ചടങ്ങിൽ പശ്ചിമബംഗാൾ ക്രവർണ്ണർ ജഗ്ദീപ് ധൻകർ കേന്ദ്രമന്ത്രി രമേഷ് പൊഖ്രിയാൽ നിഷാങ്ക് എന്നിവർ പങ്കെടുക്കും

ചർച്ചയിൽ അധ്യാപകരെയും രക്ഷിതാക്കളെയും ഉൾപ്പെടുത്തണമെന്ന് പൊതു ആവശ്യം ഉയർന്നിരുന്നതായി പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

ഇന്ത്യ ഒമാന് കോവിഡ് വാക്സിൻ നൽകി സഹായിച്ചതിൽ സുൽത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ചു കോവിഡ് മഹാമാരിക്കെതിരെ പരസ്പര സഹകരണം മെച്ചപ്പെടുത്താമെന്ന് ഇരു നേതാക്കളും സമ്മതിച്ചു

നരേന്ദ്രമോദി അഭിനന്ദനം അറിയിച്ചു

ലോകത്തെ പ്രബുദ്ധമാക്കിയ ആത്മീയ നേതാവായിരുന്നു പരമഹംസനെന്ന് ശ്രീ

രാജ്യത്തെ ഒന്നിപ്പിക്കുന്നതിൽ പരമഹംസന്റെ ഉദ്ബോധനങ്ങൾ സുപ്രധാന പങ്കാണ് വഹിച്ചത് പരമഹംസന്റെ ചിന്തകൾ തലമുറകൾക്ക് പ്രചോദനമാണെന്ന് ശ്രീ

കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ രാമകൃഷ്ണ പരമഹംസന് പ്രമാണമർപ്പിച്ചു

ജെ

യുടെ അഞ്ചാമത്തേയും അവസാനത്തേയും ഘട്ട പരിബർത്തൻ യാത്ര കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും

കൊൽക്കത്തയിലെ ഭാരത് സേവാശ്രം സംഘയിലും ശ്രീ

ശ്രീനഗറിൽ പര്യടനം നടത്തിയ ശേഷമാണ് സംഘം ജമ്മു സന്ദർശിക്കുന്നത്

ജില്ലാ വികസന കൌൺസിലിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുമായി പ്രതിനിധകൾ ആശയവിനിമയം നടത്തും

ഒരു റിപ്പോർട്ട്

കോവിഡ് നിയന്ത്രണം അനുഭവങ്ങൾ മുമ്പിലുള്ള മാർഗ്ഗങ്ങൾ എന്നതാണ് ചർച്ചാ വിഷയം

കേന്ദ്ര ആരോഗൃ സെക്രട്ടറി അധ്യക്ഷത വഹിക്കും

പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി നിംതിത റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ തുടങ്ങവെയാണ് അജ്ഞാതൻ ബോംബ് എറിഞ്ഞത്

ജെ

ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ

വിജയ് യാത്രയിലെ ചടങ്ങിൽ ഇ ശ്രീധരൻ ബി ജെ പിയിൽ ചേരുമെന്ന് അദ്ദേഹം അറിയിച്ചു

ഇന്ന് നടന്ന സെമിയിൽ അമേരിക്കയുടെ സെറീനാ വിലൃംസിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് ഒസാക്കയുടെ വിജയം

പുരുഷ സിംഗിൾസ് സെമിയിൽ എട്ട് തവണ കിരീടം നേടിയ നൊവാക് ജോക്കോവ്വിപ്പ് റഷ്യുടെ അസ്ലൻ കരാട്സേവിനെ നേരിടും

എൽ ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ എഫ്

നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും

സ്കൂളുകളിൽ ഹാജർ നിർബന്ധമായിരിക്കില്ലെന്നും വീടുകളിൽ ഇരുന്ന് ക്ലാസുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈൻ ക്ലാസുകൾ തുടരുമെന്നും സർക്കാർ അറിയിച്ചു

ബജറ്റ് ്രഉൾപ്പടെ പ്രധാനപ്പെട്ട എല്ലാ സഭാ രേഖകളും ഡിജിറ്റൽ തൂപ്പത്തിലായിരിക്കും ലഭ്യമാക്കുകയെന്ന് സ്പീക്കർ ഡോ

ഐകൃരാഷ്ട്ര സഭാ സുരക്ഷാ സമിതിയുടെ തുറന്ന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം